കോവിഡ് പ്രതിരോധ കുത്തിവയ്പിന് രാജ്യത്ത് നാളെ തുടക്കമാകും

പ്രധാൻമന്ത്രി കൌശൽ വീകാസ് യോജനയുടെ മൂന്നാംഘട്ടത്തിന് തുടക്കമായി

പെൻഷനുകൾ വർദ്ധിപ്പിച്ചു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും

നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ബാറ്റ് ചെയ്യുന്ന ഓസ്ട്രേലി്യ ഭേദപ്പെട്ട നിലയിൽ

ആദ്യഘട്ടത്തിൽ സർക്കാർ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് കുത്തിവയ്പ് നൽകുന്നത്

ആദ്യ ഡോസ് എടുത്താലും സുരക്ഷിതരാണെന്ന ധാരണ വേണ്ടെന്നും രണ്ടാമത്തെ ഡോസ് എടുത്ത ശേഷം ഒരാഴ്ച കഴിഞ്ഞ ആന്റിബോഡി രൂപപ്പെടൂവെന്നും മന്ത്രി വൃക്തമാക്കി

തൊഴിൽ നൈപുണ്യ സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ആധുനിക കാലത്തും കോവിഡ് കാലയളവിലും വേണ്ട തൊഴിൽ നിപുണത ഗുണഭോക്താക്കൾക്ക് നൽകുകയാണ് ലക്ഷ്യമിടുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡേ വിവിധ നൈപുണ്യ വികസന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു

രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് അഞ്ച് മണിക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും വാണിജ്യ വ്യാപാര മന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ഉച്ചകോടി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തു

സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി തുടക്കം കുറിച്ചതിന്റെ അഞ്ചാം വാർഷികം കൂടിയാണ് നാളെ

അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ചർച്ച നടത്തും

ഈ അവസരത്തിൽ രാഷ്ട്രപതിയൂർ പ്രധാനമന്ത്രിയും ആശംസകൾ അർപ്പിച്ചു

അവസാന ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫായ ഫ്രാൻസിസ് ബുച്ചറിൽ നിന്നാണ് ലെഫ്റ്റനന്റ് ജനറൽ കരിയപ്പ ചുമതലയേറ്റെടുത്തത് രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത ധീര സൈനികരെ ഈ അവസരത്തിൽ സ്മരിക്കുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു

നമ്മുടെ സൈനികർ ധീരരും നിശ്ചയദാർഢ്യമുള്ളവരുമാണെന്ന് പ്രധാനമന്ത്രി ട്ടിറ്ററിൽ കുറിച്ചു സൈനികരെയും അവരുടെ കുടുംബങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം ഏകതാ പ്രതിമ സ്ഥാപിതമായിരിക്കുന്ന കെവാഡിയയെ മറ്റിടങ്ങളുമായി ബന്ധിപ്പിക്കുന്നുവെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഗുജറാത്തിലെ റെയിൽവേ മേഖലയിലെ മറ്റ് പദ്ധതികളും ഈ അവസരത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം പിയൂഷ് ഗോയൽ മുഖ്യമന്ത്രി പ്പിജ്യ് രൂപാണി തുടങ്ങിയവരും സന്നിഹിതരായിരിക്കും

അടുത്ത സാമ്പത്തിക വർഷം എട്ട് ലക്ഷം തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കും

കെ ഫോൺ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു

തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചുരുങ്ങിയത് മൂന്നുലക്ഷം പേർക്കുകൂടി തൊഴിൽ നൽകും

എം

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും തിയേറ്ററിലും വെർചലായും ഇത്തവണ ചലച്ചിത്രങ്ങൾ ആസ്വദിക്കാം കോവിഡ് ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് വെർചലായും ചിത്രങ്ങൾ കാണാനുള്ള അവസരം ഒരുക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ മികച്ചു ചിത്രങ്ങൾ കാണാനുള്ള അവസരമാണ് പ്രേക്ഷകർക്ക് മേളയിലൂടെ കൈവരുന്നത്

മേളയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ചിത്രങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട് എന്നതും പ്രത്യേകതയാണ് വിഖ്യാത ഇന്ത്യൻ സംവിധായകൻ സത്യജിത് റേയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും